മാറ്റുന്നതിന് കേന്ദ്രം നിരവധി പരിഷ്കരണങ്ങൾ നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പുരസ്കാരം ഏർപ്പെടുത്തുമെന്ന് പോർച്ചുഗീസ് പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റു

മാധ്യമപ്രവർത്തകരെ മോചിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി

ന്യൂഡൽഹിയിൽ അസോച്ചം വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഈ ലക്ഷ്യം നേടിയെടുക്കാൻ രാജ്യം ഒന്നടങ്കം മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ച് വർഷം മുൻപ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയിലേക്ക് നീങ്ങുകയായിരുന്നുവെന്നും തന്റെ ഗവൺമെന്റ് സമ്പദ് രംഗത്ത് അച്ചടക്കവും ക്രിയാത്മകതയും കൊണ്ടുവന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഗവൺമെന്റ് വെല്ലുവിളികളെ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ചർച്ചകളിലുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമെന്ന് അസം മുഖ്യമന്ത്രി ് സർബാനന്ദ സോനോവാൾ പറഞ്ഞു പൌരത്വ ഭേദഗതി നിയമൃത്തിലൂടെ തദ്ദേശവാസികളുടെ അവകാശങ്ങൾ ഹനിക്കില്ലെന്നും മുഖ്യമന്തി ് പറഞ്ഞു സംസ്ഥാനത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സ്ത്രക്ഷിക്കാൻ തന്റെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് വ്യാജ് പ്പചാരണങ്ങൾക്ക് വശംവദരാകരുതെന്ന് ജനങ്ങളോട് അദ്ദേഹം അഭൃർത്ഥിച്ചു

ബ്രോഡ്ബാന്റ് സേവനം സംസ്ഥാനത്ത് നേരത്തെ പുനരാരംഭിച്ചിരുന്നു

എസ് ലഷ്കർ ഇ ത്വയ്ബ ജെയ്ഷെ ഇ മൊഹമ്മദ് ഹക്കാനി ശൃംഖല ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് എതിരെയുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് പാകിസ്ഥാൻ മറ്റ് രാജ്യങ്ങളുമായി ഒരു തരത്തിലുമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും ഇതിനായി അടിയന്തരവും സുസ്ഥിരവുമായ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ ഉറപ്പാക്കണമെന്നും ഇന്ത്യയും അമേരിക്കയും ്യൂആവശ്യപ്പെട്ടു

മുംബൈ പഠാൻകോട്ട് ഭീകരാക്രമണങ്ങളിൽ അതിർത്തിക്ടുന്നുള്ള കൂട്ടാളികളായ കടന്നു കയറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് വിച്ചൂരണ ചെയ്യണമെന്നും പാകിസ്ഥാനോട് ഇന്ത്യയും അമേരിക്കയും സ്ക്യുക്തമായി ആവശ്യപ്പെട്ടു

ഇന്ത്യൻ അമേരിക്കൻ പാർലമെന്റംഗങ്ങൾ അന്യോന്യം രാജ്യങ്ങൾ സന്ദർശിച്ച് നയതന്ത്ര പ്രാധാനൃമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ളതാണ് ഈ സംവിധാനം

അഞ്ച് നക്സൽ ബാധിത മേഖലയിൽ രാവിലെ ഏഴ് മണി മുതൽ മൂന്ന് മണി വരെയാണ് വോട്ടെടുപ്പ്

സമാധാനപരമായ വോട്ടെടുപ്പിനായി വിപുലമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി

സാമുഹിക വിരുദ്ധ ഇടപെടലുകൾ ലക്ഷ്യമാക്കിയുള്ള നുഴഞ്ഞുകയറ്റും തടയുന്നതിനായി ബീഹാർ പശ്ചിമബംഗാൾ അതിർത്തികളിൽ പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടർമാരോട് ആഹ്വാനം ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആഭ്യന്തര വിദേശ നിക്ഷേപകർക്ക് പ്രിയങ്കരമായ നിക്ഷേപ സ്ഥാനമായി ജമ്മു കശ്മീരിനെ മാറ്റാൻ ഇത് സഹായിക്കും നിക്ഷേപക സംഗമത്തിന്റെ സംഘാടക സമിതിയുടെ ആദ്യ യോഗത്തിന് അധൃക്ഷത വഹിക്കുകയായിരുന്നു ജമ്മുകശ്മീർ ചീഫ് സെക്രട്ടറി

കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി നരേന്ദ്ര സിംഗ് ഇന്നലെ തോമറുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു

ഒരു റിപ്പോർട്ട്

മൃഗ സംരക്ഷണവുമായ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായിരിക്കും ആദ്യ പുരസ്കാരം മൃഗങ്ങളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിലൂടെ ഒരു രാഷ്ട്രത്തിന്റെ മഹത്വം മനസ്സിലാക്കാം എന്ന ഗാന്ധിജിയുടെ മഹത് വചനം പരിഗണിച്ചാണിത് സമാധാനം സമത്വം അഹിംസ തുടങ്ങിയ ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രാധാനൃം ലോകം തിരിച്ചറിഞ്ഞു വരികയാണെന്നും ആഗോളതലത്തിൽ ഗാന്ധിജിയുടെ സ്വീകാര്യത ഏറി വരുന്നതായും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ഗാന്ധിയൻ ചിന്തകളും ആദർശങ്ങളും ജീവിതത്തിൽ സാംശീകരിക്കാൻ എല്ലാ പൌരന്മാരും തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമ്മേട്ടി ് പറഞ്ഞു പൊതുജന പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട ഗാന്ധിയൻ ചിന്തകളെ ഉൾക്കൊള്ളിച്ച് പ്രത്യേക അനുസ്മരണ പരിപാടിക്ക് രൂപം നൽകാനുള്ള നിർദ്ദേശങ്ങൾ ഏറെ സഹായകരമായതായും പ്രധ്യാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കർണ്ണാടക ഡിജിപിയോട് സ്ഥിതി ചർച്ച ചെയ്തെന്നും മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്നും ഡിജിപി വ്യക്തമാക്കി ഇന്നലെ മംഗലാപുരത്തുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന ആശുപത്രിക്ക് സമീപത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന മാധ്യമപ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്

കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്

തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ദിശാനിർണ്ണയ സംവിധാനമുള്ള പിനാക്ക അതീവ കൃത്യതയോടെ ലക്ഷ്യം ക തായി ഡി

ഒ വൃത്തങ്ങൾ അറിയിച്ചു

പാർലമെന്റിന്റെ ഇക്കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിലാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ലയനം മെച്ചപ്പെട്ട സംബന്ധിച്ച് പാസ്സാക്കിയത്

പ്രധാൻമന്ത്രി ഉജ്ജൽ യോജനയിൽ ഉൾപ്പെടുത്തി അഞ്ച് കോടി പാവപ്പെട്ട കുടുംബങ്ങളിലെ വനിതകൾക്ക് പാചകവാതകം നൽകാൻ മന്ത്രാലയം പദ്ധതിയാരംഭിച്ചു

ബാർ അസോസിയേഷൻ മേധാവികളും കേന്ദ്ര ഗവൺമെന്റ് അഭിഭാഷകരുമാണ് ഈ ആവശ്യം ചീഫ് ജസ്റ്റിസ് ഡി എൻ പട്ടേൽ അധ്യക്ഷനായ ബഞ്ചിന് മുന്നിൽ ഉയർത്തിയത്